എൽ

കോൺഗ്രസ് ജനതാദൾ ഗവൺമെന്റ് രാജി വെച്ചതിനെ തുടർന്ന് ഇന്നലെ വൈകീട്ടാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്തത്

വിശ്വാസവോട്ട് നേടിയ ശേഷ മായിരിക്കും മന്ത്രിസഭാ വികസനം കോൺഗ്രസിലെയും ജനതാദളിലെയും പതിനാറ് വിമത എം എൽ എമാർ തിങ്കളാഴ്ച വിശ്വാസവോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ ഭൂരിപക്ഷം നേടാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ബി

എൽ എമാർ വിട്ടുനിന്നിരുന്നു

അതിനിടെ മൂന്ന് എം എൽ എമാരെ സ്പീക്കർ വ്യാഴാഴ്ച അയോഗ്യരാക്കിയിരുന്നു

എൽ എമാരുടെ അയോഗ്യതാ കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം വരാനിരിക്കുന്നതേയു ള്ളൂ ഇന്ന് തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന

ഡി എസുകാരുമാണ്

ജെ പി ഗവൺമെന്റിന് കർഷക ക്ഷേമവും സംസ്ഥാന വികസനവും സ്ഥിരതയും നൽകാനാവുമെന്ന് ബി ജെ പി അധ്യ ക്ഷൻ അമിത്ഷാ വിശ്വാസം പ്രകടിപ്പിച്ചു ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ യെദ്യൂരപ്പ ഗവൺമെന്റിന് കഴിയുമെന്ന് അമിത്ഷാ ടിറ്റ റിൽ കുറിച്ചു പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ യോജനയിൽ കർഷകർക്ക് നാലായിരം രൂപ കൂടുതൽ നൽകുമെന്ന് യെദ്യൂരപ്പ സ്ഥാനമേറ്റ ശേഷം മാധ്യ മങ്ങളോട് പറഞ്ഞു

നെയ്ത്ത് തൊഴിലാളികളുടെ നൂറുകോടിയോളം രൂപയുടെ വായ്പ കൾ എഴുതിതള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വൈകീട്ട് കനകക്കുന്ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും നടി ഷീലക്കാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷത്തെ ജെ സി ഡാനിയേൽ പുര സ്കാരം രുട്ടിട്ട്ട്ട്ട്ട്ട്ട തൃശൂർ ജില്ലയിലെ ആനാപ്പുഴ അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി എന്നിവക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മികവിന്റെ അംഗീകാരം ലഭിച്ചു ആനാപ്പുഴ ആശുപത്രി ക്ക് ദേശീയതല ഗുണമേന്മാ അക്രഡിറ്റേഷനും കായകൽപം അവാർഡുമാണ് ലഭിച്ചത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ കായകൽപ അവാർഡ് നൽകിയിട്ടുണ്ട്

എസ് സുനിൽകുമാർ കൽപ്പറ്റയിൽ അറി യിച്ചു കർഷക ക്ഷേമനിധി ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും കാർഷികവൃത്തിയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കാൻ ബില്ലിൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു നിയമ സഭാ സെലക്ട് കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി രുമ്പ്പെട്ടിര ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയുടെ സന്ദർശനത്തെ തുടർന്ന് കാസർകോട്ട് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കാസർകോട്ടെ ബദി യടുക്ക വേളിയിലെ കുമാരമംഗലം സുബ്രഹ്മണ്യസാമി ക്ഷേത്ര ദർശനത്തി നാണ് റെനിൽ വിക്രമസിംഗെ എത്തിയത് ഇന്നലെ വൈകീട്ട് എത്തിയ അദ്ദേഹം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ദർശനം നടത്തി രുവെട്ടിര കെയർഹോം പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിൽ സഹകരണ സംഘങ്ങ ളുടെ പിന്തുണയോടെ വീടില്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു കോഴി ക്കോട്ട് സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇവരുടെ പങ്ക് സംബന്ധിച്ച് തൊടു പുഴ സെഷൻസ് കോടതി നടത്തിയ പരാമർശത്തെ തുടർന്നാണ് നടപടി മുൻ ഇടുക്കി എസ് പി കെ ബി വേണുഗോപാൽ കട്ടപ്പന ഡി

എ ഷംസ് എന്നിവർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ചായി രുന്നു കോടതി പരാമർശം അറസ്റ്റ് ആവശ്യമെങ്കിൽ പാലിക്കേണ്ട നടപടി ക്രമങ്ങൾ സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടിയതായും റിപ്പോർട്ടുണ്ട്

കേസ് വാദം കേൾക്കാനായി അടുത്തമാസം ആറിലേക്ക് മാറ്റി

രണ്ടാംതവണയും പ്രധാനമന്ത്രി യായി ചുമതലയേറ്റ ശേഷം നടത്തുന്ന രണ്ടാമത്തെ മൻ കി ബാത് പരിപാടി ന യാണിത് ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പരിപാടിയുടെ മലയാളം പരിഭാ ഷയും ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് തുഷാരഗിരിയിൽ ഏഴാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലെ ബോട്ടർക്രോസ് ഫൈനലിൽ റഷ്യൻതാരം ഇവാൻ വിജയിച്ചു

സ്ലാലോം പുരുഷ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിന്റെ അമിത് ഥാപയാണ് ജേതാവ് ഒൻപത് വിദേശരാജ്യങ്ങ ളിൽ നിന്നുൾപ്പെടെ പുരുഷ വനിതാ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടു ക്കുന്നുണ്ട്

തിരു വനന്തപുരം രണ്ടാം സ്ഥാനവും മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

സംസ്ഥാനത്തെ മികച്ച സ്കൂൾ ഫുട്ബോൾ ടീമുകളെ തെരഞ്ഞെടു ക്കുന്നതിന് സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ മത്സരത്തിന് തൃശൂരിൽ തുടക്കമായി

പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് മത്സരം സംഘടിപ്പിക്കു ന്നത് ബുധനാഴ്ചാസമാപിക്കും

ഒളിംപിക്സ് അടക്കം അന്താരാഷ്ട്ര മത്സരങ്ങ ളിൽ ഇന്ത്യൻ അത്ലറ്റുകളുടെ മികച്ച പ്രകടനം ഉറപ്പുവരുത്തുകയാണ് കമ്മി റ്റിയുടെ ലക്ഷ്യം ഒളിംപിക്സ് ജേതാക്കളായ ലിയാൻഡർ പയസ് ഗഗൻ നരംഗ് എന്നിവർ കമ്മിറ്റിയിലുണ്ട്

കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സൈക്കിൾ ബ്രിഗേഡ് പ്രഖ്യാപനവും സൈക്കിൾ വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി

നാളെ രാവിലെ ഒൻപത് മുതൽ പതിനൊന്നുവരെ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരം ന്യൂമോണിയ ബാധയെ തുടർന്ന് ഇന്നലെ വൈകീട്ട് തൃശൂ രിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആറ്റൂരിന്റെ അന്ത്യം

പാറ ത്തോട് ഇരുമലക്കപ്പ് സ്വദേശി പ്രവീഷ് തങ്കമണി സ്വദേശി പെരിങ്ങാരപ്പി ള്ളിൽ റോയ് എന്നിവരാണ് അറസ്റ്റിലായത്

ഇതുമായി ബന്ധപ്പെട്ട് നൌഫൽ ഇബ്രാഹിം എന്നയാളെ കസ്റ്റഡിയിലെടുത്തു

ടി

മധുര സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നാണ് പണം പിടി കൂടിയത്

എടക്കൽ ഗുഹ പൂക്കോട് കർലാട് പഴശ്ശി പാർക്ക് എന്നിവയടക്കം പന്ത്രണ്ടോളം ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം

ടി ഒ എ കെ ശശികുമാർ അറിയിച്ചു അമി തവേഗവും ടയറിന്റെ തേയ്മാനവും മൂലവുമാണ് അപകടമുണ്ടായതെന്നാണ് വിലയിരുത്തൽ

പി രാമകൃഷ്ണൻ കോഴിക്കോട്ട് ഉദ്ഘാ ടനം ചെയ്യും ജില്ലയിലെ പൊലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളിൽ എസ് എസ്

സി പ്തസ്ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കുന്ന ചടങ്ങിലും മന്ത്രി പങ്കെടുക്കും

ബിരിയാണി ചപ്പാത്തി ചിക്കൻക റി എന്നിവ കണ്ണൂർ നഗരത്തിൽ അഞ്ച് കിലോമീറ്റർ ചൂറ്റളവിലെ വീടുകളിൽ എത്തിക്കും

കർണാടക ത മിഴ്നാട് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ചേന കയറ്റി അയ ക്കുന്നുമുണ്ട്

ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സ രത്തിൽ സമ്മാനം നേടിയവർക്ക് പുരസ്കാരം സമാപന ചടങ്ങിൽ വിതര ണം ചെയ്യും

നാളെ സമാപിക്കും